ഐ നേതാവ് ബിനോയ് വിശ്വം ഇന്ന് സുപ്രിംകോടതിയെ സമീപിക്കും

പരമ്പരാഗത പൊലിമയും ആഢം ബരങ്ങളും മാറ്റിവെച്ച് സഹജീവി സ്നേഹത്തിന്റെ കൈയൊപ്പായാണ് ഇത്തവണ ഓണം കൊണ്ടാടുന്നത് ആശ്വാസകേന്ദ്രങ്ങളിൽ സ്നേഹം പങ്കിട്ടും നൊമ്പരങ്ങളിൽ പങ്കുചേർന്നും ഈ ദിനത്തെ സാർത്ഥകമാ ക്കുകയാണ് മലയാളികൾ

ക്യാംപുകളിൽ നിന്ന് വീടുകളി ലേക്ക് മടങ്ങിയവർക്ക് ഓണക്കിറ്റ് നൽകിയിരുന്നു ള്ളട്ടിട ഓണാഘോഷത്തോടനുബന്ധിച്ച് പ്രധാന ക്ഷേത്രങ്ങളിൽ ഭക്ത രുടെ വൻതിരക്കായിരുന്നു ഗുരുവായൂർക്ഷേത്രം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ആറന്മുള പാർഥസാരതി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ധാരാളം ഭക്തരെത്തി

കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളീയർ നേരിടുന്ന പ്രയാസങ്ങൾ അതിജീവിക്കാൻ ഓണം കൂടുതൽ കരുത്ത് നൽകട്ടെ യെന്ന് അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു രാഷ്ട്രം മുഴുവൻ കേരളത്തോ ടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണെന്നും സംസ്ഥാ നത്തെ ജനങ്ങളുടെ സന്തോഷത്തിനും സമ്പൽസമൃദ്ധിക്കും വേണ്ടി പ്രാർഥിക്കുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു

സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പ്രയാസമേറിയ സമയമാണി തെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു ദുരിതാശ്വാസ ക്യാംപുകളിലും വീടു കളിലും ജനങ്ങൾ പ്രിയപ്പെട്ടവരെയോർത്ത് വിലപിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭിന്നതകൾ മാറ്റിവെച്ച് ഒത്തൊരുമിച്ച് കേരളത്തെ പുനർനിർമിക്കുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധകേന്ദ്രീകരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു

ഈയിടെയുണ്ടായ പ്രളയത്തിൽ സംസ്ഥാനം അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് കേരളീയർക്ക് കറകയറാൻ കഴി യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഉറപ്പുണ്ടെന്ന് അവർ ടിറ്ററിൽ പറഞ്ഞു രുട്ട്ടിട്ടു സംസ്ഥാനത്ത് പ്രളയത്തിലും പേമാരിയിലും തകർന്ന വൈദ്യുതി മേഖല പൂർവസ്ഥിതിയിലാക്കുന്നതിന് ജോലികൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു

ലോവർപെരിയാർ പെരിങ്ങൽകുത്ത് ലെഫ്റ്റ്ബാങ്ക് എക്സ്റ്റൻഷൻ പന്നിയാർ എന്നീ പ്രധാന വൈദ്യുതി നിലയങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് ആന്ധ്രയിൽ നിന്നുള്ള ജീവ നക്കാരും പുനർനിർമാണ ജോലികളിൽ സഹായിക്കുന്നുണ്ട്

ള്ളത്ത പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന കേരളത്തിന് യു

ഇ പ്രഖ്യാപിച്ച ധനസഹായം സ്വീകരിക്കണമെന്ന് മുൻ വിദേശകാര്യമന്ത്രി യശ്വന്ത് സിൻഹ ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു

കേരളത്തിനു വേണ്ടി എല്ലാവരുടെയും സഹായം സ്വീകരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗുജറാത്ത് ഭൂകമ്പത്തിനു ശേഷം താൻ പല രാജൃങ്ങളോടും സഹായം തേടിയിരുന്ന കാര്യം യശ്വന്ത് സിൻഹ ഓർമിപ്പിച്ചു

ള്ളട്ടരിട പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന കേരളത്തിന് സഹായവുമായി ദുബൈ വിമാനക്കമ്പനിയായ എമിറേറ്റ്സിന്റെ പ്രത്യേക വിമാനം തിരു വനന്തപുരത്തെത്തും

രുട്ട്ട്ടിട്ടു പ്രളയബാധിതമേഖലയിൽ മൂന്നുമാസം സൌജനൃമായി വിതരണം ചെയ്യാൻ അധിക ഭക്ഷ്യധാന്യം അനുവദിക്കണ്മെന്ന് സംസ്ഥാനം കേന്ദ്രത്തോടാവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് മന്ത്രി പ്പി തിലോത്തമൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാന് കത്തയച്ചു

ഉപഗ്രഹചി ത്രങ്ങളുടെ സഹായത്തോടെയായിരിക്കും ഭൂപടം തയ്യാറാക്കുകയെന്ന് സി

എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കോഴിക്കോട്ട് പറ ഞ്ഞു നാശനഷ്ടങ്ങളുടെ വൃക്തമായ ചിത്രം ലഭിക്കാനും ഭാവിയിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ കണ്ടെത്താനും ഭൂപടം സഹായി ക്കും

കടൽപ്രക്ഷുബ്ധമാവാനിടയുണ്ട് മത്സ്യത്തൊ ഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദേശിച്ചിട്ടുണ്ട്

ഇതിനായി കോടതികളിൽ മീ ഡിയ റൂം തുറക്കുന്നതോടൊപ്പം പരാതിക്കാർ മാധ്യമപ്രവർത്തകർ സന്ദർശകർ അഭിഭാഷകർ എന്നിവർക്ക് കാണുന്നതിന് അടിസ്ഥാന സൌകര്യമൊരുക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അറ്റോർ ണി ജനറൽ കെ കെ വേണുഗോപാൽ സമർപ്പിച്ച ശുപാർശകൾ പരി ശോധിച്ച ശേഷം കേസിൽ വിധി പുറപ്പെടുവിക്കുമെന്ന് ചീഫ് ജസ്റ്റി സ് ദീപക് മിശ്ര അറിയിച്ചു

ഹീറ്റ്സിൽ ഒന്നാമതായാണ് അനസ് ഫിനിഷ് ചെയ്തത് ചേതൻ ബാലസുബ്രഹ്മണ്യ പുരുഷവിഭാഗം ഹൈജംപ് ഫൈനലിൽ കടന്നു നാലിനങ്ങളിലാണ് ഇന്ന് ഫൈനൽ

രുടെ പ്പെട്ടിരി ദേശിയ പാതയിൽ കണ്ണൂർ പള്ളിക്കുന്ന് ശ്രീപുരം സ്കൂളിന് സമീപം ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് ബുള്ളറ്റ് ഗ്യാസ് ടാങ്കർ മറിഞ്ഞു ലോറി റോഡിന് കുറുകെയാണ് മറിഞ്ഞത് മറിയുമ്പോൾ ടാങ്കറിന്റെ ഒരു ഭാഗം സമീപത്തെ കാറിൽ തട്ടി കാർ യാത്രക്കാരായ നാല് പേർക്ക് നിസാര പരിക്കേറ്റു

വാതകചോർച്ച ഉണ്ടായിരുന്നില്ല ടാങ്കർ സംഭവസ്ഥലത്തുനിന്ന് കണ്ണൂർ പൊലിസ് മൈതാനത്തേക്ക് മാറ്റി

സഹോദരൻ അബ്ദുൽ സലീമിന്റെ മകൻ ഷഹീനെയാണ് മുഹമ്മദ് തട്ടികൊണ്ടുപോയി കൊലപ്പെടുത്തിയത്

ള്ളിരി പിണറായി കൂട്ടക്കൊലക്കേസ് പ്രതി സൌമ്യ ജയിലിൽ മരിച്ച സംഭവ ത്തിൽ സംസ്ഥാന മനുഷ്യാവകാൾ കമ്മിഷൻ കേസെടുത്ത് അന്വേഷ ണത്തിന് ഉത്തരവിട്ടു കണ്ണൂർ വനിതാ ജയിൽ അധികൃതർക്കെതിരെ യാണ് കേസെടുത്തത് ജയിൽ ഡി

പി അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മിഷൻ ജുഡീഷ്യൽ അംഗം പി

മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തി ലാണ് കമ്മിഷൻ സ്വമേധയാ കേസെടുത്തത്

ഉരുൾപൊട്ട്ലിനെ തുടർന്ന് വനാ തിർത്തിയിൽ നിർമിച്ച ആനമതിൽ ഉൽപ്പെടെ പ്രതിരോധ സംവിധാനം തകർന്നതാണ് ആനകൾ ഫാമിലേക്ക് കടക്കാൻ ഇടയായതെന്ന് കരു തുന്നു ള്ളിരു പ്രളയത്തെതുടർന്ന് സംസ്ഥാനത്ത് മാറ്റിവെച്ച റെയിൽവെ പരീ ക്ഷകൾ അടുത്തമാസം നാലിന് നടക്കും

കേരളത്തിൽ പരീക്ഷാകേന്ദ്രം ലഭിച്ചവർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ പരീക്ഷാകേന്ദ്രം ലഭിച്ച കേരളീയർക്കുമാണ് പുതിയ പരീക്ഷ നടത്തുന്നതെന്ന് റെയിൽവെ മന്ത്രാലയം അറിയിച്ചു ള്ളിരി പ്രളയദുരിതബാധിതർക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ച സൌജന്യ അരി റേഷൻ കടകളിൽ എത്തിക്കണമെന്ന് കേരള റീട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു കടകളിൽ വെള്ളം കയറി നശിച്ച റേഷൻ സാധനങ്ങൾ മാറ്റി നൽകണമെന്നും ഈ മാസത്തെ റേഷൻ വിതരണ തിയ്യതി നീട്ടണമെന്നും അസോസിയേഷൻ ആവശ്യ പ്പെട്ടു

റേഷൻ കടകൾ വഴി കാർഡൊന്നിന് ഒരു കിലോ പഞ്ചസാരയാണ് ലഭിക്കുക

വെള്ളം നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിലും വീടുകളിലെ ചെളി ഉൾപ്പടെ നീക്കി താമസ യോഗ്യമാക്കുന്നതിനായി പലരും ക്യാമ്പുകളിൽ തുടരുകയായിരുന്നു